ജനാധിപതൃത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണമന്ത്രീ രാജ്യവർധൻ സിംഗ് റാത്തോഡ് കരിപ്പൂർ വിമാനത്താവള വികസ്നം സംബന്ധിച്ച് കേരളം സമർപ്പിച്ച പാക്കേജിന് അനുമതി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലു

മഹാരാജാസ് കോളജ് വിദ്യാർത്ഥി അഭിമന്യു വധക്കേസിൽ പ്രതികൾക്കെതിരെ യുഎപിഎ ചുമത്തുന്നകാരൃം തീരുമാ നിച്ചിട്ടില്ലെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ തിരൂർ പടിഞ്ഞാറെക്കരയിലും പൊന്നാനിയിലും വളളങ്ങൾ കാറ്റിലും തിരയിലും തകർന്നു കോടികളുടെ നഷ്ടം കണ ക്കാക്കുന്നു സംസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ അനു മതി ലഭിച്ചു

റേഷൻ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും നേരത്തെ രണ്ടു തവണ സർവകക്ഷി സംഘത്തിന് പ്രധാനമ ന്ത്രിയെ കാണാനുളള അനുമതി നിഷേധിച്ചിരുന്നു

അക്രമങ്ങൾ പൊറുപ്പിക്കാനാവില്ലെന്നും രാജ്യത്തിന്റെ സ്വാത ന്ത്ര്യത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ മനോരമ ന്യൂസ് സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യം എന്ന വിഷയത്തിലെ കോൺക്ലേവ് ഉദ്ദ്ഘാടനം ചെയ്യു കയായിരുന്നു കേന്ദ്രമന്ത്രി

രണ്ട് ജവാൻമാർക്ക് പ്രിക്കേറ്റു അച്ചാപാൽചൌക്കിൽ ക്രമസമാധാന ചുമ തലക്ക് നിയോഗീച്ചിരുന്ന സിആർപിഎഫ് സംഘത്തിന് നേരെ ഭീക രർ വെടിവ്ക്കുകയായിരുന്നുവെന്ന് സൈനിക കേന്ദ്രങ്ങൾ ശ്രീന ഗറിൽ അറിയിച്ചു കരിപ്പൂർ വിമാനത്താവള വികസനം സംബന്ധിച്ച് കേരളം സമർപ്പിച്ച പാക്കേജിന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു കരിപ്പൂർ വിമാനത്താവള അവഗണനക്കെതിരെ എം കെ രാഘവൻ എം

മലബാറിന്റെ സമഗ്ര വികസനം പൂർണമാകുന്നത് കരിപ്പൂർ വിമാനത്താവളം പ്രവർത്തന സജ്ജമാകുന്ന തോടെയാണെന്നും ചെന്നിത്തല പറഞ്ഞു

കരിപ്പൂർ ജിദ്ദ സർവീസ് ആരംഭി ച്ചതിനു ശേഷം കൂടുതൽ വലിയ വിമാനങ്ങളുടെ സർവീസ് സംബ ന്ധിച്ച് നടപടി എടുക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ അറിയിച്ച തായി അദ്ദേഹം പറഞ്ഞു ബുധനാഴ്ച കേന്ദ്ര വ്യോമയാനമന്ത്രി സുരേഷ്പ്രഭുവുമായി എംപിമാർ കൂടിക്കാഴ്ച നടത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പാലക്കാട് മലയോരമേഖലകളിലെ കാട്ടാന് ശല്യത്തിന് പരിഹാരം കാണാൻ മന്ത്രി കെ

കാട്ടാന ശലൃത്തിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചരൃത്തിൽ ഭരണപരിഷ്കാര് ്കമ്മീഷൻ ചെയർമാൻ വി

അച്യുതാനന്ദന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് യോഗം ചേരുന്നത് പറമ്പിക്കുളം ആദിവാസികോളനികൾക്കു ഭീഷണിയായ ആത്തൂർ കൊമ്പ്നെ നേരിടാൻ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കാൻ ഇന്നലെ ജനപ്രിതിനിധീ കളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം തീരുമാനിച്ചു മഹാരാജാസ് കോളജ് വിദ്യാർത്ഥി അഭിമന്യു വധക്കേസിലെ പ്രതികളുടെ മേൽ യുഎപിഎ ചുമത്തുന്ന കാര്യം തീരുമാനിച്ചിട്ടി ല്ലെന്ന് ഡിജിപി ലോക്നാഥ്ബെഹ്റ വൃക്തമാക്കി പ്രതികളെ പിടി കൂടിയശേഷം ഇക്കാര്യം തീരുമാനിക്കുമെന്നും ഇവരുടെ തീവ്രവാ ദബന്ധം ഉൾപ്പെടെ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു അഭിമന്യു വധക്കേസിൽ മുഴുവൻ പ്രതികളും ഉടൻ പിടിയിലാ കുമെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുന്നുണ്ട് തങ്ങളല്ല പ്രതികൾ എന്ന എസ്ഡിപിഐ നിലപാട് സ്വാഭാവികമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറ ഞ്ഞു അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് ആലുവയിൽ നിന്ന് രണ്ട് എസ്ഡിപിഐ പ്രവർത്തകരെ കൂടി അന്വേഷണസംഘം കസ്റ്റഡിയിലെടുത്തു ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടി ല്ല

കുമ്പസാര രഹസ്യം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഇന്നലെ അറസ്റ്റിലായ ഫാ

തിരുവല്ല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോട തിയാണ് ഹർജി പരിഗണിക്കുന്നത്

കേസിലെ മറ്റുപ്രതികൾക്കായി അന്വേഷണസംഘം തിരച്ചിൽ തുടരുകയാണ് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസ് അന്വേഷിക്കുന്നതിൽ പൊലീസിനുമേൽ സമ്മർദ്ദമില്ലെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി

ആവശ്യമെങ്കിൽ അന്വേഷണസംഘം ജലന്ധറി ലേക്ക് പോകുമെന്ന് ഡ്രിജിപി തിരുവനന്തപുരത്ത് സ്വകാര്യ ചാന ലിനോട് പറഞ്ഞു ജലന്ധർ ്ബിഷപ്പിനെതിരായ ലൈംഗികാരോപണ കേസിൽ കർദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരിയുടെ മൊഴിയെടുക്കുമെന്ന് കോട്ടയം എസ് പി ഹരിശങ്കർ വ്യക്തമാക്കി

കേര ളത്തിലെ അന്വേഷണം പൂർത്തീകരിച്ച ശേഷം കൂടുതൽ അന്വേ ഷണത്തിന് ബുധനാഴ്ചക്ക് മുൻപ് ജലന്ധറിലേക്ക് പോകുമെന്നും എസ്പി കോട്ടയത്ത് പറഞ്ഞു തിരൂർ പടിഞ്ഞാറെക്കരയിലും പൊന്നാനിയിലും നങ്കൂരമിട്ടിരുന്ന മത്സ്യബന്ധന വള്ളങ്ങൾ കാറ്റിലും തിരയിലും പെട്ട് തകർന്നു

ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റും തിരയടിയും കാരണം എട്ട് വള്ളങ്ങൾ പൂർണമായി തകർന്നു

ഏതാനും വള്ളങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് വകുപ്പ് അധികൃതരുടെ സഹായത്തോടെ മറ്റ് വള്ളങ്ങൾ ഉപയോഗിച്ച് കെട്ടി വലിച്ച് കരക്കെത്തിച്ചു

താനൂർ മേഖലയിൽ നിന്നുള്ള വള്ളങ്ങളാണ് പടിഞ്ഞാറെക്കരയിൽ കെട്ടിയിട്ടിരുന്നത് പൊന്നാനിയിലെ നാല് വള്ളവും നഷ്ടമായതിൽ പ്പെടുന്നു തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ കട്ടൽക്ഷോഭത്തിൽ മത്സ്യ ബന്ധന വള്ളം മറിഞ്ഞ് രണ്ടു പേർ മരിച്ചു അഞ്ചുതെങ്ങ് സ്വദേ ശികളായ പനിയടിമ വർഗീസ് എന്നിപ്പരാണ് മരിച്ചത് ആലപ്പുഴ ചേർത്തല ദേശീയപ്പാതയിൽ മതിലകത്തിന് സമീപം ബൈക്കും ടിപ്പറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു

അരൂരിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ രാഗേഷ് രാവിലെ ജോലിക്കു പോകുമ്പോഴായിരുന്നു അപകടം കോഴിക്കോട്ട് ക്കിയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കൂടുതൽ ഷട്ടറുകൾ ഉടൻ തുറന്നേക്കും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കക്കയം ഡാം പ്രൊജക്ട് എക്സിക്യുട്ടിവ് എൻജിനീയർ അറിയിച്ചു

തെങ്ങുകൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്ക് കേരഗ്രാമങ്ങളിൽ പ്രത്യേക ആനുകൂല്യം ലഭിക്കും

രാജ്യത്തിന്റെ യശസ്സു യർത്തിയ ഹിമ പുതു തലമുറക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു ലോക ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ട്രാക്കിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അസം സ്വദേശിയായ ഹിമ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇടപ്പളളി പത്തടിപ്പാലം പ്രീത ഷാജിയുടെ വീട് ജപ്തി ചെയ്യുന്ന നടപടിക്കെതിരെ സമരം ചെയ്ത മൂന്ന് പേർ കസ്റ്റഡിയിലായി പി ജെ മാനുവൽ വി സി ജെന്നി ഷൈജു കണ്ണൻ എന്നിവരെയാണ് കളമ്ഗ്ശേരി പൊലീസ് കസ്റ്റഡിയിലെടുത്ത് വായ്പാതിരിച്ചടവ് മുട്ടങ്ങി രണ്ടരക്കോടി യോളം രൂപ കടമായതോടെയാണ് ബാങ്ക് ജപ്തി നടപടിക്ക് ഒരു ങ്ങിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലാന്റിംഗിനിടെ വിമാനം റൺവെയിൽ നിന്നും തെന്നിമാറി

യാത്രക്കാർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു

പൂരിപ്പിച്ച ഹെൽത്ത്കാർഡ് ഹാജരാക്കണമെന്ന് അധികൃതർ അറിയിച്ചു പാലക്കാട് അട്ടപ്പാടി വനമേഖലയിലെ കഞ്ചാവ് കൃഷി കണ്ടെത്താൻ ഡ്രോണുകളെ ഉപയോഗിക്കാൻ എക്സൈസ് വകുപ്പ് തീരുമാനിച്ചു വനമേഖലയിൽ കഞ്ചാവ് കൃ ഷി വ്യാപകമാകുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കഴിഞ്ഞദിവസം വനമേഖലയിലെ വലിയ കഞ്ചാവ് തോട്ടം പോലീസ് നശിപ്പിച്ചിരുന്നു

ഇന്നലെ വൈകീട്ട് മംഗളുരുവിൽ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ട സൂപ്പർഫാസ്റ്റ് ട്രെയിനിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ പിടികൂ ടിയത് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത് ഉൽപ്പന്നങ്ങളുടെ ഉടമയെ കണ്ടെത്താനായില്ല ലോകപ്രശസ്ത സ്വീഡിഷ് സംവിധായകൻ ഇംഗ്മർ ബർഗ്മാന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഞ്ച് സിനിമകൾ കോഴിക്കോട്ട് പ്രദർശിപ്പിക്കും മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ രണ്ട് ദിവസത്തെ പ്രദർശന ത്തിന് ഇന്ന് വൈകീട്ട് തുടക്കമാകും

തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ പത്മ കുമാർ ഉദ്ഘാടനം ചെയ്യും പൂർണമായും പ്രിത മാനദണ്ഡം പാലിച്ചാവും സദ്യകൾ നടത്തുക